വിദേശവാക്സിനുകൾക്ക് അനുമതി നൽകുന്ന പ്രക്രിയ വേഗത്തിലാക്കി കേന്ദ്രസർക്കാർ

വാർത്തകളെ തള്ളി ക്യേന്ദ്രം

തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിനുള്ള സമയം വെട്ടിച്ചുരുക്കി

റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം

മഹാരാഷ്ട്ര കർണാടക ഛത്തീസ്ഗഡ് ദ്ധ്യൽഹി തമിഴ്നാട് ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ്ശ് സഗുജറാത്ത് കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് പ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്

അടിയന്തര സാഹചര്യങ്ങളിൽ വിദേശ വാക്സിനുകൾക്ക് അനുമതി നൽകുന്ന പ്രക്രിയ വേഗത്തിലാക്കിയതായി കേന്ദ്ര ആരോഗൃ മന്ത്രാലയം അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ വോയിസ് ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര ഉപയോഗ പട്ടികയിലുളള വിദേശ വാക്സിനുകളുടെ നിയന്ത്രിത വിതരണത്തിനാണ് രാജ്യത്തെ കോവിഡ് വാക്സിൻ വിതരണ ചുമതലയുളള വിദഗ്ധ സംഘമായ നെഗ് വാക് നിർദ്ദേശം നൽകിയത്

അതിന് ശേഷം മാത്രമേ രാജ്യമെമ്പാടും ഇവയുടെ വിതരണം ആരംഭിക്കാവൂ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് സുരക്ഷ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വാക്സിന് സാമ്പത്തിക സഹായം നൽകുന്നത് പൂനെ ആസ്ഥാനമായുളള ജനോവ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡാണ് വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്

വാക്സിൻ ലഭൃതയല്ല പ്രധാന പ്രശ്നമെന്നും വാക്സിനേഷൻ യജ്ഞനത്തിനുളള സംസ്ഥാനങ്ങളുടെ ആസൂത്രണം മെച്ചപ്പെടേണ്ടതാണെന്നും സർക്കാർ വ്യക്തമാക്കി വാക്സിൻ സംഭരണ കേന്ദ്രങ്ങളുടെ ലഭ്യത സംസ്ഥാനങ്ങൾ പുനപരിശോധിക്കണമെന്നും അവ ആവശ്യമുളള വിവിധ പ്രദേശങ്ങളിലേക്ക് വിനിയോഗിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാ കേന്ദ്രങ്ങളിലും വാക്സിൻ ഉറപ്പാക്കാനും വാക്സിൻ പാഴാക്കുന്നത് പരിശോധിക്കാനും ഇത് ഉപകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

കണിയൊരുക്കിയും കൈനീട്ടം കൈമാറിയും വിഷുവിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ

വിഷുവിനോടനുബന്ധിച്ച് ഗുരുവായൂരും ശബരിമലയും ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ പ്രസ്സ് വിഷുക്കണി ദർശനം ഒരുക്കിയിട്ടുണ്ട് പ്രധാനമിന്തീയും ഗവർണറും മുഖ്യമന്ത്രിയുമുൾപ്പെടെയുള്ള പ്രിമുഖ്ർ എല്ലാ മലയാളികൾക്കും വിഷു ആശംസകൾ ്നേർന്നു

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ ഉത്തരവ് പ്രകാരം നാളെ വൈകുന്നേരത്തോടെ പരസ്യപ്രചരണം അവസാനിക്കും

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡാർജലിങ് ജില്ലയിലെ ലബോങിൽ നടന്ന പ്രചരണ റാലിയിൽ പങ്കെടുത്തു എന്നാൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് രാത്രി എട്ട് മണിവരെ പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്

ഇനി നാല് ഘട്ടങ്ങളിലെ വോട്ടെടുപ്പാണ് ശേഷിക്കുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഫെബ്രുവരിയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ ഒരാളായി നിയമിതനായത്

എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം ചെന്നൈയിലെ എം

ടോസ് നേടിയ കൊൽക്കത്ത ബൌളിംഗ് തിരഞ്ഞെടുത്തു

ഗുജറാത്തിലെ ഡോ ബാബാസാഹേബ് അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്

മത്സ്യ കർഷകരുടെ വരുമാനവും ജീവിത നിലവാരവും സ്വയംപര്യാപ്തതയും വർദ്ധിപ്പിക്കാനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതി സഹായകരമാകുമെന്ന് മന്ത്രി പറഞ്ഞു